പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകീർത്തിച്ചു

പഞ്ചായത്തീരാജ് ഭിന്നത്തിൽ രാജ്യമെമ്പാടുമുള്ള പഞ്ചായത്ത് അധികൃതരെ അഭിസ്ഥർബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി

അടിസ്ഥാന ആവശ്യങ്ങളിൽ ഓരോ ഗ്രാമപഞ്ചായത്തും ഓരോ ബ്ലോക്ക് പഞ്ചായത്തും ഓരോ ജില്ലയും സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട്

ജനവാസമുള്ള വിദൂര ഗ്രാമപ്രദേശങ്ങളുടെ രേഖാചിത്രം തയ്യാറാക്കാൻ ആളില്ല വിമാനങ്ങൾ ഉപയോഗിച്ച് സർവേ നടത്തുന്ന സ്ഥമിത്വാ പദ്ധതി രീതി ് ആറ് സംസ്ഥാനങ്ങളിൽ പ്രാരംഭമായി തുടങ്ങിയിട്ടുണ്ട് ഇത് ആസൂത്രണത്തിനും സ്വത്തുക്കളുടെ അവകാശത്തിലെ വൃക്തതയ്ക്കും ഗുണകരമാണെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

എല്ലാം ഗ്രാമവാസികളും ആരോഗ്യസേതു ആപ്പ് ഡൌൺലോഡ് ചെയ്യണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു

ഇതുവരെ സ്ഥിരീകരിച്ചത്

രാജ്യത്തെ ജനാധിപത്യ സംവിധാനം ശക്തിപ്പെടുത്താൻ പഞ്ചായത്തീരാജ് നടപ്പാക്കിയതിലൂടെ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു

ആവശ്യമുള്ളവർക്ക് ഓക്സിജൻ നൽകുന്നതിനാണ് ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നതെന്നും പ്രത്യേക സമിതി അധ്യക്ഷൻ വെളിപ്പെടുത്തി

രോഗപരിശോധന നടത്തുന്ന ലാബുകൾക്ക് സമയബന്ധിതമായും മതിയായ തോതിലും പരിശോധന നടത്തുന്നതിനുള്ള രാസഘടകങ്ങൾ എത്തിച്ച് നൽകാൻ കേന്ദ്രം സംസ്ഥാനങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ്ഡെസ്ക് ആകാശവാണി

ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും പരിപാടി പ്രക്ഷേപണം ചെയ്യും

തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സമ്പദ് വൃവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ലോക്ക് ഡൌണിനെ തുടർന്ന് ഗ്രാമങ്ങളിലേക്ക് മടങ്ങിയവർക്കായി തൊഴിൽ സൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് തയ്യാറാക്കിയ പദ്ധതി കഴിഞ്ഞ ദിവസം അദ്ദേഹം വിലയിരുത്തിയിരുന്നു എല്ലാ വകുപ്പുകളും തൊഴിൽദാന പദ്ധതി തയ്യാറാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശം നൽകി

മൂന്ന് കേസുകളും കാസർകോഡ് ജില്ലയിലാണ് സ്ഥിരീകരിച്ചതെന്നും ഇവർക്ക് സമ്പർക്കത്തിലൂട്ടെയാണ് രോഗബാധയുണ്ടായതെന്നും മുഖ്യമന്ത്രി തിരുവനന്തഏരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കാസർകോഡ് ജില്ലയിലെ അഞ്ചുപേരുടെയും പത്തനംതിട്ട മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ നിന്നുള്ള മൂന്ന് പേർ വീതവും കൊല്ലം ജില്ലയിലെ ഒരാളുടെയും പരിശോധന ഫലമാണ് ഇന്ന് നെഗറ്റീവ് ആയത്

ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്

വിവിധ സേനാ കമാന്റർമാരുമായി വീഡിയ്യോ കോൺഫറൻസിംഗിലൂടെ കോവിഡ് ്പ്രതിരോധ പ്രവിർത്തനങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു പ്രതിരോധ മന്ത്രി സംസ്കാന സർക്കാരുകളുമായി ചേർന്ന് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങ്ളാണ് സൈനൃം നടത്തിവരുന്നതെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് വില്ലിയിരുത്തി

ലോക്നായ്ക് ജയ്പ്രകാശ് നാരായൺ ആശുപത്രിയിൽ നടത്തിയ പ്താസ്മ തെറാപ്പി ഏറെ ഫലപ്രദമാണെന്ന് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ ്വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു

കാർഗിൽ ജില്ലയിലുള്ളവരെ ഒമ്പത് ബസുകളിലായി കോൺവോയ് അടിസ്ഥാനത്തിൽ കാർഗിലിലേക്കയച്ചു നാട്ടിൽ മടങ്ങിയെത്താനായതിൽ തീർത്ഥാടകർ കേന്ദ്ര സർക്കാരിന് നന്ദി അറിയിച്ചു